ഗവർണറോട് ശുപാർശ ചെയ്യാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം

ധനമന്ത്രിയായി പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ നിയമിച്ചു

വീരമൃത്യു വരിച്ച ജവാന്മാർക്കുള്ള സ്മാരകം പുൽവാമയിലെ ലെത്പൊറ ക്യാമ്പിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്തു ജവാന്മാരുടെ പേരും ചിത്രങ്ങളും സ്മാരകത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ജവാന്മാർക്ക് പുഷ്പചക്രം സമർപ്പിക്കുന്ന ചടങ്ങിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഉമേഷ് ഗോപിനാഥ് ജാദവ് മുഖ്യാതിഥിയായി

ജാദവ്

ഭീകരവാദം തുടച്ചു നീക്കുന്നതിലുള്ള പോരാട്ടത്തിലാണ് രാഷ്ട്രമെന്നും അദ്ദേഹം പറഞ്ഞു

രാജ്യത്തെ സംരക്ഷിക്കാനായി ജീവൻ വെടിഞ്ഞ അപുർവ്വ വ്യക്തിത്വങ്ങളാണ് അവരെന്ന് ശ്രീ

രാജ്യ രക്ഷാ മന്ത്രി രാജ് നാഥ് സിംഗും ജവാന്മാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചു

എഫ് ജവാന്മാർ വീരമൃത്യു വരിച്ചത്

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ സന്ദർശിക്കുന്ന പോർച്ചുഗീസ് സംഘം രാഷ്ട്രപതി ഭവനിലെ ഔദ്യോഗിക വിരുന്നിലും പങ്കെടുക്കും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവുമായും പോർച്ചുഗൽ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും നാലു ദിവസത്തെ സന്ദർശനത്തിനായാണ് പോർച്ചുഗൽ പ്രസിഡന്റ് ഇന്നലെ തലസ്ഥാനത്ത് എത്തിയത് അദ്ദേഹത്തെ പോർച്ചുഗീസ് മന്ത്രിസഭാ അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും അനുഗമിക്കുന്നുണ്ട് മഹാരാഷ്ട്ര ഗോവ എന്നീ സംസ്ഥാനങ്ങളും പോർച്ചുഗീസ് പ്രസിഡന്റ് സന്ദർശിക്കും

ആദരണീയതയുടെയും മാന്യതയുടേയും അർപ്പണ ബോധത്തോടെയുള്ള പൊതുജന സേവനത്തിന്റേയും പ്രതീകമായിരുന്നു സുഷമ സ്വരാജെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു സഹപ്രവർത്തക എന്ന നിലയിലും മന്ത്രി എന്ന നിലയ്ക്കും അസാമാന്യയായിപ്പ്യക്തിയായിരുന്നു അവരെന്നും പ്രധാനമന്ത്രി അഭിപ്രായുള്ളൂർക്കുവച്ചു

കേരളത്തിൽ കൊറോണ സ്ഥിരീകരിച്ച മൂന്നുപേരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അദ്ദേഹം പറഞ്ഞു

സ്ഥിതിഗതികൾ പ്രധാനമന്ത്രിയുടെ ഓഫീസും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളും നിരീക്ഷിച്ചു വരികയാണെന്നും ഡോ ഹർഷ് വർദ്ധൻ പറഞ്ഞു അടിയന്തര സാഹചരൃങ്ങളെ നേരിടാനാവശൃമായ മെഡിക്കൽ ഉപകരണങ്ങൾ ഗവൺമെന്റ് സംഭരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു ചൈനയ്ക്ക് ആവശ്യമായ മെഡിക്കൽ സഹായങ്ങൾ ഇന്ത്യ നൽകും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഫിലിപ്പെൻസ് ജപ്പാൻ എന്നീ രാജ്യങ്ങളിലായി ഓരോ പേർ വീതവും മരിച്ചിട്ടുണ്ട്

കേരളവിദ്യാഭ്യാസ ഭേദഗതി ഓർഡിനൻസ് കേരളസംസ്ഥാന ചരക്കുസേവന നികുതി ഭേദഗതി ഓർഡിനൻസ്കേരള മിനറൽസ് വെസ്റ്റിംഗ്ഓഫ് റൈറ്റ്സ് ഓർഡിനൻസ് കേരളദേവസ്വം റിക്രൂട്ട്മെൻറ് ബോർഡ് ഭേദഗതി ഓർഡിനൻസ്കേരള കോ ഓപ്പറേറ്റീവ്സൊസൈറ്റീസ് ഭേദഗതി ഓർഡിനൻസ് കേരള അഗ്രികൾച്ചറൽവർക്കേഴ്സ് ഭേദഗതി ഓർഡിനൻസ് കേരള ലേബർ വെൽഫയർഫ് ഭേദഗതി ഓർഡ്മീയൻസ് കേരളയൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റിൽ സ്യൻസസ് ഇന്നൊവേഷൻ ആന്റ് ടെക്ന്യേളജീ ഓർഡിനൻസ് എന്നിവൃഷ്ടാണ്പുനഃവിളംബരം ചെയ്യാൻ ശുപാർശ ചെയ്തത്

എ പന്തീരാങ്കാവ്യു

എ കേസിലെ പ്രതികളായ അലൻ ഷുഹൈബിനെയും താഹ ഫൈസലിനെയും റിമാന്റ്നീട്ടുന്നതിനായി കൊച്ചിയിലെ പ്രത്യേകകോടതിയിൽ ഇന്ന് ഹാജരാക്കും കേസന്വേഷണം ഏറ്റെടുത്തഎൻ ഐ

അതേസമയം കേസിൽ എൻ ഐ

ചടങ്ങിൽ പ്രിച്ചിമ്ബംഗാളിലെ വിവിധ റെയിൽവേ പദ്ധതികൾക്കും ക്ക്യേന്ദ്രമന്ത്രി തുടക്കം കുറിച്ചു

പാകിസ്ഥാൻ വംശജനായ സാജിദ് ജാവീദിന് പകരമായാണ് റിഷി സുനാക് നിയമിതനായത് ഇൻഫോസിസ് സ്ഥാപക ചെയർമാൻ ആർ നാരായണമൂർത്തിയുടെ മരുമകനാണ് റിഷി ഇദ്ദേഹത്തിന് പുറമേ ഇന്ത്യൻ വംശജനായ അലോക് ശർമ്മയെ ബ്രിട്ടീഷ് വ്യാപാര സെക്രട്ടറിയായും നിയമിച്ചിട്ടുണ്ട്

മൻപ്രീതിന്റെ വിജയത്തിൽ ഹോക്കി ഇന്ത്യ അഭിനന്ദനമറിയിച്ചു പുരസ്കാരം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മൻപ്രീത്

ബെൽജിയം താരം ആർതർ വാൻ ഡോറെൻ അർജന്റീനയുടെ ലൂക്കാസ് വില്ല എന്നിവരെ പിൻതള്ളിയാണ് മൻപ്രീത് പുരസ്കാരം സ്വന്തമാക്കിയത്